ഹിന്ദു പാകിസ്ഥാൻ പ്രാമർശത്തിൽ ഡോ

ക്ഷേത്ര നിർമ്മാണത്തിന് ഒരുക്കങ്ങൾ ആരംഭിച്ചുകഴിഞ്ഞതായും അദ്ദേഹം ഹൈദരാബാദിൽ വെളിപ്പെടുത്തി തെലങ്കാന പാർട്ടി നേതാ ക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അമിത്ഷാ ഇക്കാര്യം അറിയി ച്ചതെന്ന് ബിജെപി നേതാവ് പി ശേഖർജി മാധ്യമങ്ങളോട് പറഞ്ഞു ലോക് സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നേരത്തെ ആക്കി ല്ലെന്നും അമിത്ഷാ പറഞ്ഞു തെരഞ്ഞെടുപ്പുകൾ നിശ്ചിത സമയത്തേ നടത്തൂ എന്ന് അമിത്ഷാ വ്യക്തമാക്കി കോഴിക്കോട് വിമാനത്താവളത്തിൽനിന്നും വലിയവിമാനങ്ങൾ സർവ്വീസ് നടത്തുന്നതിനാവശ്യമായ സൌകരൃങ്ങൾഒരുക്കുമെന്ന് കേന്ദ്ര മന്ത്രി സുരേഷ് പ്രഭു പറഞ്ഞു ഇതുസംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഉദ്യോഗ സ്ഥർക്കു നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകിയതായി വി മുരളീ ധരൻ എം

ന്യൂഡൽഹിയിൽ അറിയിച്ചു ഹിന്ദു പാക്കിസ്ഥാൻ പരാമർശത്തിൽ ശശി തരൂർ എം

ക്കെതിരെ കൊൽക്കത്ത ഹൈക്കോടതി കേസെടുത്തു

കേരള സംഗീതനാടക അക്കാദമി പുരസ്കാരങ്ങൾ മന്ത്രി എ കെ ബാലൻ തൃശൂരിൽ വിതരണം ചെയ്തു സംസ്ഥാന ഫെലോഷിപ്പുകളും രാജ്യാന്തര നാടകോത്സവ മാധ്യമ പുരസ്കാർങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു അഭിമന്യു വധക്കേസിൽ യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ സാധി ക്കുന്നില്ലെങ്കിൽ കേസ് എൻ ഐ

ക്ക് വിടണമെന്ന് കോൺഗ്രസ് നേതാവ് വി

സുധീരൻ ആവശ്യപ്പെട്ടു കേസിൽ പ്രധാനപ്രതികളെ പിടികൂടുന്നതിൽ പൊലീസിന് വീഴ്ച സംഭവിച്ചുവെന്ന് അദ്ദേഹം തിരുവ നന്തപുരത്ത് പറഞ്ഞു കോഴിക്കോട് പുതുപ്പാടിയിൽ അക്രമി പെട്രോളൊഴിച്ച് തീക്കൊളു ത്തിയ സ്വകാര്യ പണമിടപാട് സ്ഥാപന ഉടമ മരിച്ചു കുപ്പായക്കോട് ഒള വോക്കുന്നേൽ സജി കുരുവിളയാണ് രാവിലെ മെഡിക്കൽ കോളേജ് അശുപത്രിയിൽ മരിച്ചത് അക്രമിച്ച പ്രതി ആലപ്പുഴ വള്ളിക്കുന്ന് സ്വദേശി സുരേഷ് കുമാറാണെന്ന് പൊലീസ് സ്ഥിരീകരിച്ചു ഇന്നലെ ഉച്ചകഴി ഞ്ഞാണ് സ്ഥാപനത്തിലെത്തിയ ഇയാൾ മുളകുപൊടി എറിഞ്ഞശേഷം കുരുവിളയെ പെട്രോൾ ഒഴിച്ച് തീക്കൊളുത്തിയത് ജലന്ധർ ബിഷപ്പിനെതിരായ ലൈംഗികാരോപണക്കേസിൽ കർദ്ദി നാൾ ജോർജ്ജ് ആലഞ്ചേരിയുടേയും പാല ബിഷപ്പ് ഡോ ജോസഫ് കല്ലറങ്ങാട്ടിന്റെയും കുറുവിലങ്ങാട് പള്ളിവികാരി ഫാദർ ജോസഫ് തടത്തിന്റെയും മൊഴി ഇന്ന് രേഖപ്പെടുത്തും

വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ വൈദികൻ സുപ്രീംകോ ടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി

ഇയാൾക്കെതിരെ പൊലീസ് തെരച്ചിൽ ഊർജ്ജിതമാക്കുന്നതിനിടെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷാ തീരത്ത് ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ ഫലമായി സംസ്ഥാനത്ത് മൂന്ന് ദിവസം കനത്ത മഴ പെയ്തേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം ശക്തമായ കാറ്റ് വീശുമെന്നതിനാൽ മത്സ്യതൊഴിലാളികൾ കടലിൽപോകരുതെന്ന് കേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു കരസേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് ഇന്ന് ജമ്മുകശ്മീർ സന്ദർശി ക്കും

കഴിഞ്ഞ ദിവസങ്ങളിൽ കശ്മീരിലുണ്ടായ ഭീകരാക്രമണ ങ്ങളിൽ സി

എഫ് ജവാന്മാർ കൊല്ലപ്പെട്ടിരുന്നു ലോകകപ്പ് ഫുട്ബോളിൽ മൂന്നാം സ്ഥാനക്കാരെ കണ്ടെത്താൻ ലൂസേഴ്സ് ഫൈനൽ ഇന്ന് സെമിഫൈനൽ മത്സരങ്ങളിൽ പരാജയപ്പെട്ട ഇംഗ്ലണ്ടും ബെൽജിയവും രാത്രി ഏഴരയ്ക്ക് സെന്റ് പീറ്റേഴ്സ് ബർഗിൽ ഏറ്റുമുട്ടും

മോസ്കോയിലെ ലുഷ്നിക്കി സ്റ്റേഡിയത്തിൽ ഫ്രാൻസും ക്രൊയേഷ്യയും ലോകകപ്പിനുവേണ്ടി പോരാടും

വലിയ സ്ക്രീനിൽ ലോകകപ്പി കാണാൻ സൌകര്യമൊരുക്കിയ നൈനാംവളപ്പ് സ്കൂളിലാണ് ട്രോഫിക ളുടെ പ്രദർശനവും സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് ലോഡ്സിൽ

ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ എട്ട് വിക്കറ്റിന് തോൽപ്പിച്ചിരുന്നു പാലക്കാട് പത്തിരിപ്പാല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പുതിയ കെട്ടിടം വൈകീട്ട് മന്ത്രി എ

പത്തിരിപ്പാല ഹയർസെക്കറി സ്കൂൾ കെട്ടിടത്തിന് മന്ത്രി തറക്കല്ലിടും ചടങ്ങിൽ വിദ്യാവികാസ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും പാലക്കാട് ജില്ലയിലെ കാലവർഷക്കെടുതി നേരിട്ട പ്രദേശങ്ങൾ നാളെ മന്ത്രി എ

കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങ ളെയും മന്ത്രി സന്ദർശിക്കും നിലമ്പൂർ പാലാങ്കര വട്ടപ്പാടത്ത് റബ്ബർതോട്ടം കാവൽക്കാരനെ ഇന്നു പുലർച്ചെ കാട്ടാന ചവിട്ടിക്കൊന്നു

മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇടുക്കി ശാന്തൻപാറ രാജാപാറമേട്ടിൽ റിസോർട്ട് മാനേജരെ കാട്ടാന ചവിട്ടികൊന്നു ജംഗിൾ പാലസ് റിസോർട്ട് മാനേജർ കുമാറാണ് കൊല്ല പ്പെട്ടത്

പാലക്കാട് മലമ്പുഴ മണ്ഡലത്തിലെ കാട്ടാനശല്യം അവസാനിപ്പിക്കാൻ നടപടി എടുക്കണമെന്നാവശൃപ്പെട്ടു ബി ജെ പി ജനജീവിത കർഷക സംരക്ഷണ യാത്ര നടത്തി യാത്ര് പുതുശ്ശേരിയിൽ ആരംഭിച്ചു മുൂരിൽ സമാപിച്ചു

കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ ഒരുകോടിയോളം രൂപയുടെ കൃഷിനാശം സംഭവി ച്ചതായാണ് പ്രാഥമിക കണക്ക് മാഹിയിൽ ഇന്ന് ഫ്രഞ്ച് ദേശീയദിനം ആചരിക്കുന്നു മാഹി അല യൻസ് ഫ്രാൻസ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ചലചിത്രനടൻ ഇന്ദ്രൻസ് മുഖ്യാതിഥിയായിരിക്കും

ഹിന്ദു ദേശീയത വർത്തമാനവും ഭാവിയും എന്ന വിഷയത്തിൽ ഭാരതീയ വിചാരകേന്ദ്രം ജോയിന്റ് ഡയറക്ടർ ആർ സഞ്ജയൻ വിഷയാവതരണം നടത്തി

പട്ടയ വിതരണം നടത്താൻ നിശ്ചയിച്ച സ്ഥലത്തെ സംബന്ധിച്ച് കോടതി അലക്ഷ്യ കേസിനെ തുടർന്നാണ് മേള മാറ്റിയത് കോടതി അല ക്ഷ്യ കേസ് തീർപ്പാക്കാൻ അടിയന്തിര നടപടിയെടുക്കാൻ അഡ്വക്കറ്റ് ജ നറലിന് നിർദ്ദേശം നൽകിയതായി റവന്യു മന്ത്രി അറിയിച്ചു ഇത്തരമൊ രു സാഹചരൃത്തിന് ഇടവരുത്തിയ ഉദ്യോഗ്നസ്ഥർക്കെതിരെ നടപടിയെ ടുക്കാൻ ലാന്റ് റവന്യു കമ്മീഷണർക്ക് മന്ത്രി നിർദ്ദേശം നൽകി കണ്ണൂർ ജില്ലയിലെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയരായ വർക്ക് ആവശ്യമായ മരുന്നുകൾ സൌജന്യമായി നൽകാൻ ജില്ലാ പഞ്ചാ യത്ത് പദ്ധതി ആവിഷ്കരിക്കുന്നു വാർഷിക പദ്ധതിയിലുൾപ്പെട്ട ടുത്തിയാണ് ഇത് നടപ്പിലാക്കുകയെന്ന് ജില്ലാപഞ്ചായത്ത് പ്രസിഡ് കെ

വൃക്കരോഗവുമായി ബന്ധപ്പെട്ട മരുന്നുകൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് ജില്ലാ ആശുപത്രിയോടനുബന്ധിച്ച് പ്രത്യേക ഫാർമസി തുടങ്ങാൻ പദ്ധതിയുന്നെും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയ രായവരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു സുമേഷ്

പെരിന്തൽമണ്ണ ഇ

രുമാസത്തിനകം ആംബുലൻസ് സൈറ്റ് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാകുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു രാഷ്ട്രീയ സംഘർഷമേഖലയായ തിരൂർ കൂട്ടായി അരയൻ കടപ്പു റത്ത് സി

എം

കുറിയന്തപുരക്കൽ സൈനുദ്ദീന്റെ വീട്ടിനകത്തേക്ക് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയതിനെതുടർന്ന് മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഇയാ ളുടെ മകൾ നിസൽജയ്ക്ക് പൊള്ളലേറ്റു

ഒഴിച്ച്തീകൊളുത്തുകയായിരുന്നു

മുയാട് ഇൻഡോർ സ് റ്റേഡിയത്തിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘാക സമിതി ഓഫീസ് ഉദ്ഘാട നം ചെയ്തു ഇടുക്കി മൂന്നാർ പെരിയവരാ ഫാക്ടറി ഡിവിഷനിൽ താമസക്കാരായ മൂന്നുപേരെ ഒഴുക്കിൽപെട്ട് കാണാതായി പുഴയിൽചാടിയ ഭാര്യയെയും കുഞ്ഞിനെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഭർത്താവും ഒഴു ക്കിൽപെട്ടത് പൊലീസും ഫയർഫോഴ്സും തെരച്ചിൽ നടത്തുന്നുണ്ട്

ഉച്ചകഴിഞ്ഞ് പ്രതിനിധി് സമ്മേളനവും സാംസ്കാരിക സമ്മേളനവും നടക്കും പഴയകാല നൃത്ത പ്രതിഭകളെ ചടങ്ങിൽ ആദരിക്കും